ആവശ്യമെങ്കിൽ ഇടപെടുമെന്ന് മുന്നണി കൺവീനർ ബെന്നി ബെഹനാനും ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫ് യുഡിഎഫ് വിട്ടാൽ ഇടതുമുന്നണിയിൽ എടുക്കുന്നകാര്യം ആലോചിക്കുമെന്ന് കോടിയേരി ബാല കൃഷ്ണൻ ബിജെപി സ്ഥാനാർത്ഥികളെ ശനീയാഴ്ച പ്രഖ്യാപിച്ചേക്കും ശബരിമലവിഷയം പ്രചാരണവിഷയമാക്കരുതെന്ന് പറയാൻ ആർക്കും കഴിയില്ലെന്ന് കുമ്മനം രാജശേഖരൻ എസ് എസ് എൽ സി പരീക്ഷ നാളെ തുടങ്ങും ശബരിമല ഉത്സവത്തിന് കൊടിയേറി കേരള ക്യോൺഗ്രസ് എം പ്രശ്നത്തിൽ ഇടപെടേണ്ട സാഹ ചര്യം ഇപ്പോഴില്ലെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അറി യിച്ചു അവരുടെ പ്രശ്നം അവർതന്നെ പരിഹരിക്കുമെന്നും തർക്ക ങ്ങൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു യുഡിഎഫ് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്

കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തർക്കമി ല്ലെന്നും വെളളിയാഴ്ച വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടയു ണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മറ്റന്നാൾ കോഴിക്കോട്ട് വരുന്നതിനാൽ ഡൽഹിയിൽ ഇല്ലാത്ത സാഹചര്യമാണ് തീരു മാനം നീളാൻ കാരണം സിപിഐഎം പ്രാദേശിക പാർട്ടിയാ ണെന്നും അവർക്ക് സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപി ക്കാമെന്നും ചെന്നിത്തല പറഞ്ഞു

മതവികാരം വ്രണപ്പെ ടുത്തുന്ന വിഷയം ഉന്നയിക്കരുതെന്നാണ് തെര ചട്ടമെന്നും ചെന്നി ത്തല അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ വ്യെണ്ടിവന്നാൽ ഇട പെടുമെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബ്രെഹനാൻ അറി യിച്ചു ഇങ്ങനെ മുന്നോട്ടു പോവാനാകില്ലെന്നും പ്രശ്നങ്ങൾ ഗൌര വത്തോടെ കാണുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു കോട്ടയത്ത് പാളിച്ചകൾ ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും ബെന്നി ബഹനാൻ വ്യക്തമാക്കി കേരള കോൺഗ്ര സ്റ്റിലെ പ്രിശ്ന ങ്ങൾ പരി ഹ രി ക്കാൻ കോൺഗ്രസ് ഇടപെടുമെന്ന് പാർട്ടി പ്രവർത്തകസമിതി അംഗം ഉമ്മൻചാണ്ടി പറഞ്ഞു നാളെ കേരളത്തിലെത്തിയശേഷം കെപി സിസി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രനും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നീത്തലയുമായും കൂടിക്കാഴ്ച നടത്തി കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവുമായി പ്രത്യേകം ചർച്ച നടത്തു മെന്ന് അദ്ദേഹം അഹമ്മദാബാദിൽ അറിയിച്ചു

കോൺഗ്രസ് സാധാരണഗതിയിൽ മറ്റുപാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇതൊരു പ്രത്യേക സാഹചര്യമാണെന്നും എല്ലാ പ്രശ്നങ്ങളും രമ്യ മായി പരിഹരിക്കാൻ കഴിയുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു

പി ജെ ജോസഫിന് സീറ്റ് നൽകാത്തത് യുഡിഎഫ് പ്രവർത്ത കർക്ക് വേദനയുണ്ടാക്കുന്ന തീരുമാനമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് മോൻസ്ജോസഫ് അഭിപ്രായപ്പെട്ടു കോട്ടയത്ത് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും പാർലമെന്ററി പാർട്ടിയിലും ഉയർന്നുവന്ന പൊതുനിർദേശം പിജെ ജോസഫിനെ മത്സരിപ്പിക്ക ണമെന്നതായിരുന്നുവെന്ന് അദ്ദേഹം കടുത്തുരുത്തിയിൽ മാധ്യമ ങ്ങളോട് പറഞ്ഞു

പി ജെ ജോസഫ് പാർട്ടി വിട്ടുവന്നാൽ എൽഡ്വിഎഫിൽ എടു ക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ കൂട്ടിയായ ജോസഫിന് ആഗ്ര ഹിച്ച സീറ്റ് കിട്ടിയില്ല എന്നത് പാർട്ടിയിൽ അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവുമില്ല എന്നതിന്റെ തെളിവാണെന്നും കോടിയേരി മാധ്യ മപ്രവർത്തകരോട് പറഞ്ഞു

ശബരിമലവിഷയം തെര ഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിലവിലെ ചട്ടങ്ങ ളുടെ ലംഘനം തന്നെയാണ് ഇക്കാര്യം ഓർമ്മിപ്പിക്കുകമാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചെയ്തതെന്നും കോടിയേരി വ്യക്ത മാക്കി കേരള കോൺഗ്രസിലെ പ്രശ്നം അവരുടെ ആഭ്യന്തര കാര്യ മെന്ന് മുസ്തിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലി കുട്ടി അഭിപ്രായപ്പെട്ടു യുഡിഎഫ് ഇടപെടേണ്ട കാര്യം ഇപ്പോഴി ല്ലെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു പ്രശ്നം കേരള കോൺഗ്രസ് തന്നെ പരിഹരിക്കുമെന്ന് ആത്മ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളുമായി ഇന്നലെ രാത്രി ചർച്ച ചെയ്തെന്നും യുഡിഎഫ് ഇടപെടേണ്ട ഘട്ടമെത്തിയിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന കോടിയേരി അവരുടെ മുന്നണിയിലും ഇത്തരം അസംതൃപ്തരുടെ പാർട്ടികളുണ്ടെന്ന് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് കോട്ട യത്ത് പി ജെ ജോസഫിന് സീറ്റ് നൽകാതിരുന്നതെന്ന് പി സി ജോർജ്ജ് എംഎൽഎ അഭിപ്രായപ്പെട്ടു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി ഇടത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കേരള കോൺഗ്ര സിലെ ചില നേതാക്കൾ എൽഡിഎഫുമായി ചർച്ച നടത്തിയിരു ന്നുവെന്നും അദ്ദേഹം കോട്ടയത്ത് ആരോപിച്ചു കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് എൽഡി എഫുമായി രഹസ്യബന്ധമുണ്ടെന്ന് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവുകൂടിയായ ടി യു കുരുവിളയും ആര്യോപ്യണം ഉന്നയിച്ചി ട്ടുണ്ട് പി ജെ ജോസഫിന് സീറ്റ് നൽകാത്തിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം ൽ രാജി പാർട്ടി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം ജോർജ്ജാണ് രാജിപ്പെച്ചത് തോമസ്ചാഴികാ ടനെ സ്ഥാനാർത്ഥിയാക്കിയത് കോട്ടയും ്മണ്ഡലത്തിൽ സിപിഐ എമ്മിനെ സഹായിക്കാനാണെന്ന് അദ്ദേഹം ആരോപിച്ചു

പി എസ് ശ്രീധരൻപ്പിളളയോടും കുമ്മനം രാജശേഖരനോടും ശനി യാഴ്ച ഡൽഹിയിലെത്താൻ ബിജെപി കേന്ദ്രനേതൃത്വം നിർദേശം നൽകി കേന്ദ്രനേതൃതിവുമായി ചർച്ചകൾക്കു ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മിസോറാം ഗവർണർ പദവി ഒഴിഞ്ഞ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തെത്തി

പ്രധാന മന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയശേഷമാണ് കുമ്മനം കേരളത്തിലെത്തിയത് തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണവിഷയമാക്കരുതെന്ന് പറയാൻ ആർക്കും കഴിയില്ലെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജ ശേഖരൻ വ്യക്തമാക്കി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർക്കെതിരെ ഇക്കാരൃത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിനൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കു മെന്നും കുമ്മനം പറഞ്ഞു മത്ര്യുവീകരണത്തിനല്ല ആരാധനാ സ്വാതന്ത്ര്യമെന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ ശബരിമല പരാ മർശിക്കുക എന്നും അദ്ദേഹം അറിയിച്ചു

സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറി യിച്ചു

ലോക്സഭാ തെര തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാനാണ് പ്രധാനമായും പ്രവർത്ത്കസമിതി യോഗം ചേരു ന്നത് തെരഞ്ഞെടുപ്പിൽ ബിജെപ്പിയെ നേരിടുന്നതിന് തന്തങ്ങളും യോഗം ആവിഷ്കരിക്കും പ്രകടനപത്രികയുടെ കരടിന് അന്തി മരൂപം നൽകിയേക്കും രാഹുൽഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്

പാർട്ടി പ്രസിഡന്റ് രാഹുൽഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ യുപിഎ ചെയർപേഴ്സൺ സോണിയാ ഗാന്ധി മുൻപ്രധാനമന്ത്രി ഡോ മൻമോഹൻസിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്

വൈകിട്ട് അഹമ്മദാബാദിൽ ജയ് ജവാൻ ജയ് കിസാൻ സങ്കൽപറാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപാർട്ടി പ്രതിനിധികളുടെ യോഗം കണ്ണൂരിൽ ചേർന്നു ജില്ലാകലക്ടർ മീർ മുഹമ്മദലിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടു സംശയാസ്പദമായ പണമിടപാടുകളെ കുറിച്ച് എല്ലാ ദിവസവും റിപ്പോർട്ട് നൽകണമെന്ന് കോഴിക്കോട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീ സർ ബാങ്കുകൾക്ക് നിർദേശം നൽകി ഒരു ലക്ഷത്തിലധികം രൂപ പിൻവലിക്കുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുക സ്ഥാനാർത്ഥി യുടെയും പങ്കാളിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അക്കൌ ണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയിൽ അധികം വിരുന്നു പണമിടപാടു കൾ നടത്തുക എന്നിവ സംബന്ധിച്ച് അറിയിക്കാനാണ് നിർദേശം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമിട്ടപാട് നടത്തിയെന്ന് സംശ യമുള്ള അക്കൌണ്ട് വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദേ ശമുണ്ട്

പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ കളക്ടറേറ്റുൾപ്പട്ടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്യുന്നതിന് നടപടികൾ തുടങ്ങി മാതൃകാ പ്പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണ മെന്നും ഫ്ലെയിംങ്ങ് സ്കാഡ് മുഖേന പരിശോധന കർശനമാക്കുമെന്നും പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസറായ അസിസ്റ്റൻറ് കളക്ടർ അറിയിച്ചു

യാത്രക്കാരുടെ സുരക്ഷിതത്വമാണ് പരമപ്രധാനം ഇക്കാ ര്യത്തിൽ അടിയന്തര നടപടി ഡിജിസിഎ യുടെ ഭാഗത്തുനിന്നു ണ്ടാകണമെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി

ഈ വർഷത്തെ എസ് എസ് എൽ സി പൊതുപരീക്ഷ നാളെ ആരംഭിക്കും

താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികൾ

പരീക്ഷയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി

ശിക്ഷാനടപടി എടുക്കുന്നതിനെ പറ്റി രണ്ടാഴ്ചക്കകം അഭിപ്രായം അറിയിക്കാൻ അഭിഭാഷകന് കോടതി നോട്ടീസ് അയച്ചു ഐ എസ് എൽ ഫുട്ബോളിന്റെ രണ്ടാംപാദ സെമിയിൽ ഇന്ന് എഫ് സി ഗോവയും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും

വീണ്ടും ജനവാസകേ ന്ദ്രത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമം തുടരുകയാണ് ആനയെ തുരത്തുന്നതിനിടെ അഞ്ച് വനംവകുപ്പ് ഉദ്യോഗ സ്ഥർക്ക് പരിക്കേറ്റു